അഘാടി സഖ്യം വിശ്വാസവോട്ട് നേടി ബി ജെ

എൽ എ മാർ വോട്ടെടുപ്പ് ബഹിഷ്കരിച്ചു

എ ഗവൺമെന്റ് ്എണ്ണമറ്റ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

പ്രധാൻമന്ത്രി ശ്രം യോഗി മാൻധൻ ദേശീയ പെൻഷൻ പദ്ധതി എന്നിവയിൽ ഒരു കോടി ആളുകളെ അംഗങ്ങളാക്കാൻ കേന്ദ്രം ലക്ഷ്യമിടുന്നു

എന്നാൽ പ്രോടേം സ്പീക്കറുടെ നിയമനം മാത്രമല്ല ഈ സഭാ സമ്മേളനം തന്നെ നിയമ വിരുദ്ധവും ഭരണഘടനാ ലംഘനവുമാണെന്ന് മുൻ മുഖ്യമന്ത്രിയും ബിജെപി നേതാവുമായ ഇറങ്ങിപ്പോക്കിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ന്യൂസ് ഡെസ്ക് ആകാശവാണി

രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുക വഴി ഒരു പുതിയ ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനുള്ള പ്രയാണത്തിലാണ് ഗവൺമെന്റ് എന്നും ശ്രീ നരേന്ദ്രമോദി ട്ടിറ്ററിലൂടെ വ്യക്തമാക്കി

എ ഗവൺമെന്റ് മുന്നേറുകയാണെന്നും ശ്രീ

ജാപ്പനീസ് വിദേശകാര്യമന്ത്രി ടോഷിമിസ്തു മൊടേഗി പ്രതിരോധമന്ത്രി തരോ കൊനൊ എന്നിവരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്

ജയ്ശങ്കറുമായും ചർച്ച നടത്തും

ഏറ്റവും കൂടുതൽ പോളിംഗ ശതമാനം രേഖപ്പെടുത്തിയത് ഗുൽമ ബിഷുൺപൂർ എന്നീ മണ്ഡലങ്ങളിലാണ്

അന്തിമ പോളിംഗ് ശതമാനം ഇനിയും ഉയർന്നേക്കുമെന്നാണ് റിപ്പോർട്ട്

ഏഷ്യ പെസഫിക് മേഖലയിലെ സുരക്ഷയെ കുറിച്ചാണ് ഇരു നേതാക്കളും തമ്മിൽ പ്രധാനമായും ചർച്ച നടത്തിയത് ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ വിദേശകാര്യ മന്ത്രിതല ചർച്ചയ്ക്ക് മുന്നോടിയായിട്ടാണ് കൂടിക്കാഴ്ച നടത്തിയത്ത്

പ്രവൃത്തി ദിവസങ്ങളിൽ നല്ല പ്രകടനം കാഴ്ചവച്ച അംഗങ്ങളെ രാജ്യസഭാ അധ്യക്ഷൻ എം

കാൺപൂരിലെ പ്രൺവീർ സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നടന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിൽ വിദ്യാർത്ഥികളോട് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി രാജ്യത്തിന് സാമ്പത്തിക വളർച്ച നൽകുന്നതിന് പുറമേ നാനാ തുറകളിലുള്ള ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും പുതിയ സാങ്കേതിക വിദ്യകൾക്ക് സാധിച്ചിട്ടുണ്ട് ഛത്രപതി സാഹു ജി മഹാരാജ് സർവകലാശാലയുടെ ഒന്നാമത് പൂർവ വിദ്യാർത്ഥി സംഗമത്തിലും അദ്ദേഹം പങ്കെടുത്തു നൂതന ആശയ വികസനങ്ങളുടെയും ഗവേഷണങ്ങളുടെയും കേന്ദ്രമായി മാറാൻ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കഴിയണമെന്നും ശ്രീ കോപ്പിന്ദ് ഓർമ്മിപ്പിച്ചു ഗവേഷണങ്ങളുടെ സഹായത്തോടെ ഇന്ത്യയിൽ അറിവിന്റെ മേഖലയിൽ ഒരു സൂപ്പർ പവറായി മാറ്റുന്നത് ലക്ഷ്യമിട്ടുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ വിദ്യാഭ്യാസ് നയമെന്നും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി

രാജ്യസഭയിൽ ഗ്രാമവികസന മന്ത്രി നരേന്ദ്രസിംഗ് തോമർ എഴുതി നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്

കൂടുതൽ വിവരങ്ങളുമായി വിനോദ് കുമാർ

നൂതന ഉല്പന്നങ്ങളും പരിഹാരങ്ങളും ആവിഷ്ക്കരിക്കുന്ന രാജ്യത്തെ മികച്ച സ്റ്റാർട്ടപ്പുകളെ തിരിച്ചറിഞ്ഞ് അവരെ ആദരിക്കുവാനാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് കൂടുതൽ തൊഴിലുകൾ സൃഷ്ടിക്കുന്നതോ സമൂഹത്തിൽ മികച്ച മാറ്റം കൊണ്ടുവരുന്നതോ ആയ സ്റ്റാർട്ടപ്പുകളെയും പുരസ്കാരത്തിനായി പരിഗണിക്കും

വിവിധ ദേശീയ അന്തർദേശീയ് പരിപാടികളിലെ പങ്കാളിത്തത്തിന് അവാർഡ് ജേതാക്കൾക്ക് പ്രത്യേക മുൻഗണനയും ലഭ്യമാക്കും

നിക്ഷേപകർക്ക് സാമ്പത്തിക ലാഭം നിൽകുക മാത്രമല്ല സ്റ്റാർട്ടപ്പുകളുടെ വിജയത്തിന്റെ അളവുകോലെന്നും സാമൂഹ്യ നന്മയിലേക്കുള്ള സംഭാവനകളും ഇതിൽ പരിഗ്രണിക്കപ്പെടുമെന്നും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പിയൂഷ് ഗ്യോർ പറഞ്ഞു

വ്യാപാരികൾക്കും സ്വയം തൊഴിൽ സംരംഭകർക്കുമുള്ള ദേശീയ പെൻഷൻ പദ്ധതി എന്നിവയിൽ അടുത്തവർഷം മാർച്ചോടു കൂടി ഒരു കോടി ഗുണഭോക്താക്കളെ അംഗങ്ങളാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഒരുങ്ങുന്നു ഇന്ന് ആരംഭിച്ച പെൻഷൻ വാരാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചടങ്ങിൽ കേന്ദ്ര തൊഴിൽ മന്ത്രി സന്തോഷ് കുമാർ ഗാംഗ്വാർ രണ്ട് പദ്ധതികളിലെയും പ്രവേശനത്തിനു തുടക്കം കുറിച്ചു ഇരു പദ്ധതികളും ലളിതവും പ്രശ്നരഹിതവുമാണെന്നും മന്ത്രി പറഞ്ഞു അംഗത്വത്തിനായി ആധാർ കാർഡിനൊപ്പം സേവിംഗ്സ് ബാങ്ക് അക്കൌണ്ടോ ജൻധൻ അക്കൌണ്ടോ ആവശ്യമാണ്

വടക്കൻ ജില്ലകളായ കോഴിക്കോടും കണ്ണൂരും ഒപ്പത്തിനൊപ്പം നിൽകുകയാണ് പാലക്കാടാണ് തൊട്ടുപിന്നിൽ

കഴിഞ്ഞ വർഷം പാലക്കാടാണ് കലാകിരീടം സ്വന്തമാക്കിയത്

ദുരന്തനിവാരണം ജൽശക്തി എന്നിവ ലക്ഷ്യമിടുന്ന ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് ദിദിന സമ്മേളനം ജമ്മുവിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ജമ്മുകശ്മീരിലെ ജനങ്ങൾക്ക് ജലസംരക്ഷണം ദുരന്തനിവാരണം എന്നീ മേഖലകളിൽ മെച്ചപ്പെട്ട സൌകര്യം പ്രദാനം ചെയ്യുവാൻ സമ്മേളനം സഹായകരമാകുമെന്നും മന്ത്രി പറഞ്ഞു